ആഞ്ജലിക് ് കെർബറും വീനസ് വിലൃംസും ആദ്യ റൌണ്ടിൽ പുറത്ത്

കാശി മണ്ഡലമായ വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തിട്ടി ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ഉത്തർപ്രദേശ് മുഖൃമന്ത്രി് യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും അദ്ദേഹത്തോട്ടൊപ്പം ഉണ്ടായിരുന്നു തന്നെ വിജയിപ്പിച്ച ജനങ്ങൾക്കുർ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗ്മായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം

ഡി എ

ഗവൺമെന്റ് വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ചടങ്ങ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രീ നരേന്ദ്രമോദിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ ലോക തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഇന്നലെ അഹമ്മദാബാദ് സന്ദർശിച്ച പ്രധാനമന്ത്രി പൊതുറാലിയെ അഭിസംബോധന ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തോടെ രാജ്യത്തെ സേവിക്കാൻ ജനങ്ങൾ വീണ്ടും നൽകിയ അവസരം കൂടുതൽ കാര്യക്ഷ്മമായി വിനിയോഗിക്കുമെന്ന് ശ്രീ

എല്ലാവരുടെയില്ലൂം സഹകരണത്തോടെ ഇന്ത്യ പുരോഗതിയിലേക്ക് നീങ്ങും പ്രധാനമ്ത്തിയായി രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായി ഗാന്ധിന്റഗറിലെത്തിയ ശ്രീ

തുടർച്ചയായ് അഞ്ചാം തവണയാണ് പട്നായ്ക് ഒഡീഷ മുഖ്യമന്ത്രിയാകുന്നത് ഇത് റെക്കോർഡ് നേട്ടമാണ് ഇന്നലെ ഒഡീഷ ഗവർണർ ഗിണ്ണേഷിലാൽ ബി ജെ ഡി നേതാവ് നവീൻ പട്നായ്കിനെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിച്ചിരുന്നു സംസ്ഥാനത്ത് ഫോനി ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സതൃപ്രതിജ്ഞാ ചടങ്ങ് വളരെ ലളിതമായി ഭുവനേശ്വറിലെ പ്രദർശിനി മൈതാൻ തുറന്ന ഗ്രൌണ്ടിൽ നടക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു

ഏപ്രിൽ ഒന്നിനാണ് റോബർട്ട് വദ്രയ്ക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് വദ്രയുടെ കൂട്ടാളി മനോജ് അരോറയുടെ മുൻകൂർ ജാമൃത്തിലും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ലണ്ടനിൽ വസ്തു വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ടാണ് കോട്ട്തി നടപടി

ബി

ഐ

അഡീഷണൽ ഡയറക്ടറായി രാജീവ്കുമാറിനെ നിയമിച്ച ബംഗാൾ ഗവൺമെന്റ് നടപടികൾക്കു തൊട്ടു പിറകെയാണ് സി ബി ഐ നീക്കം രാജീവ്കുമാറുമായി ഫോണിലൂടെ ബന്ധപ്പെടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് അംഗ സി ബി ഐ സംഘം ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയാണ് നോട്ടീസ് കൈമാറിയത്

ബി

രാജിവ്കുമാറിനെതിരെ ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതായും സി ബി

ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ അന്തൃവിശ്രമ സ്ഥലമായ ശാന്തിവനിൽ സർവ്വമത പ്രാർത്ഥനയും പൂഷ്പാർച്ചനയും നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യം എന്നും ഓർക്കുമെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗ് മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി തുടങ്ങിയവരും ജവഹർലാൽ നെഹ്റുവിന് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

ഇന്നും അടുത്ത രണ്ട് ദിവസങ്ങളിലും തൽസ്ഥിതി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഗതാഗതവും സ്തംഭിച്ചു

അയൽരാജ്യമായ ഇക്കോഡോറിലും ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി

ടോക്കിയോയിലെ ഇംപീരിയൽ പാലസിൽ ട്രംപിനായി പ്രത്യേക സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നു

എന്നാൽ സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ശ്രീലങ്കൻ നാവികസേന വക്താവ് ഇസുറു ദേശപ്രിയ അറിയിച്ചു ഈസ്റ്റർ ദിവസത്തെ ഭീകരാക്രമണത്തിന് ശേഷം ശ്രീലങ്കയിൽ കനത്ത ജാഗ്രത തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

നിലവിലെ വിംബിൾഡൺ ജേതാവും അഞ്ചാം സീഡുമായ അഞ്ജലിക് കെർബറും വീനസ് വിലൃംസും ആദ്യ റൌണ്ടിൽ പുറത്തായി